സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ആറായിരം കവിഞ്ഞു

സംസ്ഥാനത്ത് സ്ഥിതി അതീവ ഗ്ഗൂരൂതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ശ്രീധരൻ സംസ്ഥാന സർക്കാരിനെ സമ്മതം അറിയിച്ചു

മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം സമ്മാനിച്ചു

എൽ ക്രിക്കറ്റിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഇന്ന് നേരിടും

സംസ്ഥാനത്ത് സ്ഥിതി അതീവ ഗുരുതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഭക്ഷ്യക്കിറ്റ് ഇൻട്രോ എല്ലാ റേഷൻ കാർഡുടമകൾക്കും ഡിസംബർ വരെ സൌജന്യ ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവ്വഹിച്ചു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന വോയ്സ് കോവിഡ് പ്രതിസന്ധിക്കിടയിൽ സംസ്ഥാനത്ത് ഒരാളും പട്ടിണി കിടക്കരുതെന്ന സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഫലമായാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം നാല് മാസത്തേക്ക് കൂടി തുടരുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി

റേഷൻ കാർഡിലെ അവസാന അക്കം അനുസരിച്ചാണ് വിതരണത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്

മുൻപ് കോവിഡിന്റെ പ്രാരംഭ ഘട്ടത്തിലും ഓണക്കാലത്തും സംസ്ഥാന സർക്കാർ പ്സമാനമായി ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയിരുന്നു

ആരോപണങ്ങളിൽ ഭയന്ന് സർക്കാർ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവ്വഹിച്ചു കൊണ്ട് പറഞ്ഞു

നടപ്പിലാക്കുന്നതിനായി സർക്കാർ മുൻപ് നൽകിയ തുകയുടെ ബാക്കി ചിലവഴിച്ച് ഡി എം ആർ സി തന്നെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മേൽപ്പാല നിർമ്മാണം ഉടൻ ആരംഭിക്കുവാൻ നടപടികൾ വേണ്ട സ്വീകരിക്കുന്നതിന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു

എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കോട്ടയത്തെ പ്രുൺ

ഫാർമസി പ്രവേശിക്ക് പരീക്ഷയിൽ തൃശൂർ സ്വദേശി അക്ഷയ്

പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിലെ അക്കിത്തത്തിന്റെ ് വീട്ടിലെത്തി സാസ്കാരിക മന്ത്രി എ

ബാലനാണ് പുരസ്കാരം സമ്മാനിച്ചത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങ്

സർക്കാരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് പ്രതിപക്ഷ ശ്രമം പ്രതിപക്ഷ സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞു

പ്രകോവിഡ് പരിശോധനയ്ക്കായി നൽകിയ വിവരങ്ങളിൽ തെറ്റായ പേര് നൽകിയതിനു പുറമേ സ്വന്തം വിലാസമോ ഫോൺ നമ്പരോ അഭിജിത്ത് നൽകിയിരുന്നില്ല

ശിവശങ്കറിനെ എൻ ഐ

കൊച്ചിയിലെ എൻ

എ

കസ്റ്റംസ് ഉദ്യോഗസ്ഥരും എൻ ഐ എ

ഒന്നാമത് ഫിറ്റ് ഇന്ത്യ വാർഷികത്തോട് അനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള ഫിറ്റ്നസ്സ് വിദഗ്ധരുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം കായികക്ഷമതയുടെ ഔഷധമായി ദിവസവും അരമണിക്കൂർ വ്യായാമം എന്നതാണ് ഫിറ്റ് ഇന്ത്യയുടെ പുതിയ മുദ്രാവാക്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിവിധ പ്രായക്കാർക്കുള്ള ഫിറ്റ്നസ്സ് പ്രോട്ടോക്കോളും അദ്ദേഹം പുറത്തിറക്കി

നവംബറിൽ നടക്കേണ്ടിയിരുന്ന മേള കോവിഡ് പശ്ചാത്തലത്തിലാണ് മാറ്റി വച്ചത് വിർചൽ രീതിയിലും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സാധാരണ രീതിയിലും മേളയിൽ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിനുളള പുരസ്കാരത്തിന് കാലിക്കറ്റ് സർവകലാശാലയും മികച്ച പ്രോഗ്രാം കോ ഓർഡിനേറ്റർക്കുള്ള അവാർഡിന് കാലിക്കറ്റ് സർവകലാശാലാ എൻ എസ്

ഐ

കമന്ററിയ്ക്കായാണ് അദ്ദേഹം മുംബൈയിലെത്തിയത്

സ്വർണവില വീണ്ടും കുറഞ്ഞു

സുധാകരൻ പ്രളയത്തിൽ തകർന്ന റോഡുകളെല്ലാം ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി ജി

മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ അഞ്ച് റോഡുകളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു കൊണ്ടാണ് മന്ത്രി ഇക്കാര്യം ്രഅറിയിച്ചത്

അഞ്ചു പേരെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പർ് സഞ്ചരിച്ച ഇന്നോവ കാറും പൊലീസ് പിടിച്ചെടുത്തു